നെയ്വേലിയിലെ ആയിരം മെഗാവാട്ട് തെർമൽ പവർ പ്രൊജക്റ്റ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും ത കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയ്യതികൾ നിശ്ചയിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിഷൻ യോഗം ഇന്ന്

ത ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഉച്ചകഴിഞ്ഞ് അഹമ്മദബാദിൽ തുടങ്ങും

ഇരു സംസ്ഥാനങ്ങളിലും നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും

സാഗർമാല പദ്ധതിയിൽ പുതുച്ചേരിയിലെ ചെറു തുറമുഖ വികസന പദ്ധതിക്കും അദ്ദേഹം തറക്കല്ലിടും കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നെയ്വേലിയിലെ ആയിരം മെഗാവാട്ട് തെർമൽ പവർ പ്രൊജക്ട് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും

ദേഴ കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയ്യതികൾ നിശ്ചയിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിഷൻ ഇന്ന് യോഗം ചേരും കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും വരുന്ന മെയ് ജൂൺ മാസങ്ങളിൽ ഗവൺമെന്റുകൾ കാലാവധി പൂർത്തിയാക്കുകയാണ് രെട കേരളത്തിന് കൂടുതൽ കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രോഗം ബാധിക്കാത്തവരാണ് കൂടുതൽപേരും സംസ്ഥാനത്ത് അതുകൊണ്ടുതന്നെ വാക്സിനേഷൻ വേഗത്തിലാക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി കൂടുതൽപേർക്ക് കഴിയുന്നത്രവേഗത്തിൽ വാക്സിൻ ലഭ്യമാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

എം കൺസൽട്ട് പരിപാടിയിലെ അഭിപ്രായങ്ങൾ കേട്ടശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാനസികാരോഗ്യ സംരക്ഷണ കാര്യത്തിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കണക്കിലെടുത്ത് അത്തരം കേന്ദ്രങ്ങളിലെ സൌകര്യങ്ങൾ വർധിപ്പിക്കാൻ ഗവൺമെന്റ് ശ്രമം നടത്തിവരികയാണ് കൌമാരക്കാരുടെയും കുട്ടികളുടെയും മാനസികാരോഗ്യ കാര്യത്തിലും പ്രത്യേക പരിഗണ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ബോധവത്കരണവും പുതിയ ശീലങ്ങളും ആവശ്യമാണെന്നും വയോജനക്ഷേമത്തിന് പ്രത്യേക സംവിധാനം ഗവൺമെന്റ് ഒരുക്കിവരികയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു മന്ത്രി കെ

ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു

ദേദ തിരുവനന്തപുരം തിരുവല്ലത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നവീകരണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും

ഏഴ് മാസംകൊണ്ട് നിർമാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രെട ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഇടുക്കി പാക്കേജ് നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ പ്രഖ്യാപിക്കും

ജെ

സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും

ബാലുശ്ശേരി കൊയിലാണ്ടി എലത്തൂർ കുന്ദമംഗലം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനുശേഷം വൈകിട്ട് മുതലക്കുളത്ത് സമാപന സമ്മേളനം ബി ജെ

ദേശീയ വക്താവ് സയ്യിദ് ഷാനവാസ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചടങ്ങിൽ പങ്കെടുക്കും വിജയ യാത്ര ഇന്നലെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി സംസ്ഥാനത്ത് മുസ്സിം ലീഗും സി

എമ്മും ധാരണയിലാണെന്ന് സുരേന്ദ്രൻ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞു കർഷക സമരത്തെ പിന്തുണച്ച് മേപ്പാടിയിൽ ട്രാക്ടർ ഓടിച്ച രാഹുൽഗാന്ധിയുടെ നടപടിയെയും അദ്ദേഹം പരിഹസിച്ചു രുദ ഉദ്യോഗാർഥികൾ നിരാഹാരം കിടന്ന് മരിച്ചാലും മുഖ്യമന്ത്രിക്ക് ആകുലതയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെതായ പ്രകടന പത്രികയാണ് യുഡിഎഫ് പുറത്തിറക്കുകയെന്ന് രാഹുൽ പറഞ്ഞു സാധാരണക്കാർക്കും ദരിദ്രർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയമാകും യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ നിലവിൽ വരികയെന്നും രാഹുൽ വ്യക്തമാക്കി ദേഴ ബിനോയ് വിശ്വം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റയാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകും

ഇന്ന് കുണ്ടറ ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി യാത്ര തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും

വിജയരാഘവൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് പാലക്കാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കും കോങ്ങാട് ചിറ്റൂർ കൊല്ലങ്കോട് ആലത്തൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വടക്കഞ്ചേരിയിൽ സമാപിക്കും ദുദ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി തിരഞ്ഞെടുത്ത ആയിരം മത്സ്യത്തൊഴിലാളികളുമായി കൊല്ലം തങ്കശ്ശേരിയിൽ രാവിലെ ഒരു മണിക്കൂർ സംവദിക്കും ആശയവിനിയമത്തിനുശേഷം രാഹുൽഗാന്ധി തിരുവനന്തപുരത്തേക്കുപോകും അദ്ദേഹത്തിന്റെ സന്ദർശനം മുൻനിർത്തി കൊല്ലം നഗരത്തിൽ സുരക്ഷ കർശനമാക്കി

നാല് മത്സര പരമ്പരയിൽ ഇരു ടീമുകളും ഓരോന്ന് വിജയിച്ച് സമനിലയിലാണ് ദേഴ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഈസ്റ്റ് ബംഗാളിലനെ തോൽപ്പിച്ചു

മുംബൈ സിറ്റി എഫ്

യെ നേരിടും

ദേഴ ഇരുപത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിലെ ആദ്യ ദിനം പ്രേക്ഷക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

ജനപങ്കാളിത്തം കൊണ്ടു ശ്രദ്ധേയമായ ആദ്യ ദിനത്തിൽ തന്നെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രവാഹം മേളയുടെ മാറ്റ് കൂട്ടി

ലോക സിനിമ വിഭാഗത്തിൽ ഏഴും ഇന്ത്യൻ സിനിമ വിഭാഗത്തിൽ ഒന്നും മലയാള വിഭാഗത്തിൽ മൂന്നു ചിത്രങ്ങളും പ്രദർശിപ്പിക്കും

ദേഴ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പി

തിരുനാവായ സർവ്വീസ് സഹകരണ ബാങ്ക് കാരന്തൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മണി രാവില ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

ദേദ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെന്റ് പ്രാമുഖ്യം നൽകുന്നതെന്ന് ജയരാജൻ മന്ത്രി ഇ

കാലഘട്ടത്തിനനുയോജ്യമായ നിലയിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവണമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിൽ രഹിതരില്ലാത്ത കേരളം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂരിലെ കേരള ക്ലേയ്സ് ആൻഡ് സെറാമിക്സ് ലിമിറ്റഡിന്റെ വൈവിധ്യവൽക്കരണ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുര മതനിരപേക്ഷ സമൂഹത്തിന്റെ വളർച്ചക്ക് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തമാകണമെന്നും ഏതാനും വർഷങ്ങളിൽ കേരളം ഈ രംഗത്ത് മികച്ച നേട്ടം ഉണ്ടാക്കിയതായും മന്ത്രി ഡോ

കാലിക്കറ്റ് സർവകലാശാല കല്ലായിയിൽ നിർമിച്ച കോഴിക്കോട് ബി

സെന്റർ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേദ അട്ടപ്പാടി ശിങ്കപാറ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ മന്ത്രി കെ

ആധുനിക സൌകര്യങ്ങളും ഉപകരണങ്ങളോടുംകൂടി വനം വകുപ്പ് സേനയെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ഇത്തവണ ക്ഷേത്രത്തിലെ കോവിഡ് നിയന്ത്രണങ്ങൾമൂലം ഉത്സവത്തിന് നൽകിവരുന്ന പ്രസാദ ഊട്ടിന് പകരം ഭക്തർക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്യാനാണ് തീരുമാനം

ദേഴ തേഞ്ഞിപ്പലത്ത് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായുള്ള സ്ഥലം കലിക്കറ്റ് സർവകലാശാല ഫയർഫോഴ്സ് വകുപ്പിന് കൈമാറി ചൊവ്വാഴ്ച ഉച്ചക്ക് സർവകലാശാല സിൻഡിക്കറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രാർ ഡോ ഇ കെ സതീഷും ജില്ലാ ഫയർ ഓഫീസർ ടി അനൂപും ധാരണപത്രം ഒപ്പുവച്ചു